ജമ്മുകാശ്മീരിലെ അനന്ത്നാഗിൽ അഞ്ച് സി

ജവാ ന്മാർ ഭീകരാക്രമണത്തിൽ വീരമൃത്യുവരിച്ചു പുതിയ മുത്തലാഖ് നിരോധന ബില്ലിന് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി വായു ചുഴലിക്കാറ്റ് ഇന്ന് ഉച്ചകഴിഞ്ഞ് ഗുജറാത്ത് തീരം കടക്കും മൂന്ന് ലക്ഷത്തിലേറെപ്പേരെ ഒഴിപ്പിച്ചു കോൺഗ്രസ് അധ്യക്ഷനായി രാഹുൽഗാന്ധി തുടരുമെന്ന് പാർട്ടി വക്താവ് രൺദീപ് സുർജേവാല സംസ്ഥാനത്ത് കാലവർഷം ശക്തമായി തുടരുന്നു തീരമേഖലയിൽ കനത്ത കടലാക്രമണം ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലാന്റിനെ നേരിടും ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ന് രാവിലെ കിർഗിസ്ഥാനിലേക്ക് പോകും

ഇതിനുപകരം ഒമാൻ ഇറാൻ മധ്യ ഏഷ്യൻ രാജ്യങ്ങൾ വഴിയായിരിക്കും വിമാന ത്തിന്റെ യാത്രാപഥം നേരത്തെ ഇന്ത്യയുടെ അഭ്യർഥന മുൻനിർത്തി വ്യോമപാത തുറക്കാൻ പാകിസ്താൻ സന്നദ്ധത അറിയിച്ചിരുന്നു ഇന്നലെ ജമ്മുകാശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തെത്തുടർന്നാണ് പ്രധാ നമന്ത്രി പാകിസ്ഥാന് മുകളിലൂടെ പോകേണ്ടതില്ലെന്ന് തീരുമാനിച്ചത്

ആർ

എഫ് ജവാന്മാരാണ് വീരമൃത്യുവ രിച്ചത് ഒരു ഭീകരപ്രവർത്തകനെ സൈന്യം വധിച്ചു മൂന്ന് ജവാന്മാർക്ക് പരിക്കേറ്റു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഭീകരസംഘടനയായ അൽ ഉമർ മുജാഹിദ്ദീൻ ഏറ്റെടുത്തു ഖനബാൽ പഹൽഗാം റോഡിൽ പട്രോ ളിങ് നടത്തുകയായിരുന്ന സൈനിക സംഘത്തിനുനേരെ ഭീകരർ ഗ്രനേഡ് എറിഞ്ഞശേഷം യന്ത്രത്തോക്കുകളുപയോഗിച്ച് വെടിവെയ്ക്കുകയായി രുന്നു പുതിയ മുത്തലാഖ് നിരോധന ബില്ലിന് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി അടുത്ത തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റ് ബജറ്റ് സമ്മേളനകാലത്ത് ബിൽ അവതരിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ന്യൂഡൽഹിയിൽ അറിയിച്ചു നേരത്തെ അവതരിപ്പിച്ചബിൽ രാജ്യസഭയിൽ പാസ്സാക്കാൻ കഴിയാത്തതിനെത്തുടർന്ന് കാലഹരണപ്പെ ടുകയായിരുന്നു

ബാങ്ക് അക്കൌണ്ട് തുറക്കാനും മൊബൈൽ കണക്ഷനെടുക്കാനും ആധാർ സ്വയം ഉപയോഗിക്കാൻ അനുമതി നൽകുന്നതാണ് ബിൽ പുതിയ സംവരണനയം അനുസരിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങ ളിൽ ഏഴായിരം അധ്യാപകരുടെ ഒഴിവുകൾ നികത്തുന്ന ഭേദഗതി ബില്ലിനും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി

ജമ്മുകാശ്മീരിൽ ആറു മാസത്തേക്കുകൂടി രാഷ്ട്രപതിഭരണം നീട്ടുന്ന ബില്ലിനും ഇന്ത്യൻ മെഡി ക്കൽ കൌൺസിലിന്റെ പ്രവർത്തനം രണ്ടുവർഷംകൂടി അസാധുവാക്കുന്ന ബില്ലിനും ഡെന്റൽ കൌൺസിലിന്റെ പ്രവർത്തനം ഫലപ്രദമാക്കുന്ന ബില്ലിനും മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിട്ടുണ്ട് വായു ചുഴലിക്കാറ്റ് ഇന്ന് ഉച്ചകഴിഞ്ഞ് ഗുജറാത്ത് തീരത്ത് ആഞ്ഞടി ച്ചേക്കുമെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി അതിതീവ്ര ചുഴ ലിക്കൊടുങ്കാറ്റായി മാറിയ വായു വെരാവലിനും ദാരകയ്ക്കും ഇടയി ലൂടെയായിരിക്കും കടന്നുപോകുന്നത്

കോൺഗ്രസ് അധ്യക്ഷനായി രാഹുൽഗാന്ധി തുടരുമെന്ന് പാർട്ടി വക്താവ് രൺദീപ് സുർജേവാല ന്യൂഡൽഹിയിൽ അറിയിച്ചു മുതിർന്ന പാർട്ടി നേതാക്കളുടെ അനൌപചാരിക യോഗത്തിനുശേഷമാണ് സുർജേ വാല ഇക്കാര്യം വെളിപ്പെടുത്തിയത്

ആന്റണിയുടെ നേതൃത്വ ത്തിലായിരുന്നു യോഗം

ആറ് ജില്ലകളിൽ പുതിയ കലക്ടർമാരെ നിയമിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു കണ്ണൂർ ജില്ലാ കലക്ടർ മീർ മുഹമ്മദ് അലിയെ ശുചിത്വമിഷൻ ഡയറക്ടറായി മാറ്റി നിയമിക്കും

ഡി ഡയറക്ടർ ടി വി സുഭാഷാണ് കണ്ണൂരിലെ പുതിയ കലക്ടർ

പകരം സാമൂഹ്യനീതി ഡയറക്ടർ ജാഫർ മാലിക്കിനെ മലപ്പുറം കലക്ടറായി നിയമിക്കും

ആലപ്പുഴ ജില്ലാ കലക്ടർ എസ് സുഹാസിനെ എറണാകുളം ജില്ലാ കലക്ടറായും മാറ്റി ഹൌസിംഗ് കമ്മീഷണർ ബി അബ്ദുന്നാസർ കൊല്ലം ജില്ലാ കലക്ടറാകും പൊതുഭരണ ഡെപ്യൂട്ടി സെക്രട്ടറി കെ ഗോപാലകൃഷ്ണനെ തിരുവനന്തപുരം ജില്ലാ കലക്ടറായി മാറ്റി നിയമിക്കും സംസ്ഥാനത്ത് കാലവർഷം ശക്തമായി തുടരുകയാണ് പലയിടത്തും കടലാക്രമണവും രൂക്ഷമായി മലപ്പുറം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

പാലേരി വേളം നെല്ലിപ്പൊയിൽ എന്നിവിടങ്ങളിൽ ഓരോ വീടുകൾക്കും ഭാഗികമായി കേടുപാടുണ്ടായി വടകര താമരശ്ശേരി എന്നിവിടങ്ങളിൽ ദുരിതാശ്ചാസ കൃാമ്പുകൾ പ്രവർത്തിക്കാൻ സജ്ജീകരണങ്ങൾ ഒരുക്കി

പലയിടത്തും വൈദ്യുതി വിതരണം തട സ്സപ്പെട്ടു ഇടുക്കി ജില്ലയിൽ കാലവർഷം തുടങ്ങിയ സാഹചര്യത്തിൽ കെടു തികൾക്കെതിരേ ജാഗ്രത പുലർത്തണമെന്ന് ദുരന്ത നിവാരണ അതോ റിറ്റി മുന്നറിയിപ്പ് നൽകി ചെറിയ മഴപോലും മേഖലയിൽ വലിയ ആഘാ തങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷത യിൽചേർന്ന അവലോകനയോഗം വിലയിരുത്തി

വൻതോ തിൽ കൃഷിനാശമുണ്ടായി

മുതിരപ്പുഴയാർ പെരിയാർ തീരവാസികൾ ജാഗ്രതപാലിക്കണമെന്ന് ജില്ലാ ദുരന്തനിവാരണ അതോറിറ്റി ആവശ്യ പ്പെട്ടു മലപ്പുറം ജില്ലയിൽ താനൂർ പൊന്നാനി മേഖലയിലെ കടൽക്ഷോഭ ത്തിൽ നൂറോളം വീടുകളിൽ വെള്ളംകയറി താനൂരിൽ സംരക്ഷണഭി ത്തിയില്ലാത്ത മേഖലകളിൽ തീരദേശ റോഡുകൾ തകർന്നു

ഇന്നലെ എട്ട് വീടു കൾ പൂർണമായും നൂറിലേറെ വീടുകൾക്ക് ഭാഗികമായും നാശനഷ്ടമു ണ്ടായി കടലാക്രമണഭീഷണി നേരിടുന്നവർക്കായി ക്യാമ്പുകൾ സജ്ജ മാക്കിയിട്ടുണ്ട് പൊന്നാനി ലൈറ്റ് ഹൌസ് പരിസരത്തെ കടൽഭിത്തി നിർമാണം ഉടൻ തുടങ്ങാൻ തിരുവനന്തപുരത്ത് സ്പീക്കർ പി ശ്രീരാമ കൃഷ്ണന്റെ ചേമ്പറിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി

കാക്കത്തോപ്പ് മുതൽ മുണ്ടയ്ക്കൽ വരെ പലയിടത്തും തീരദേശറോഡ് ഭാഗികമായി കടലെടുത്ത നിലയിലാണ് കാക്കത്തോപ്പ് ഇരവിപുരം മേഖലകളിൽ പുലിമുട്ട് നിർമ്മാണം പൂർത്തിയാക്കാത്തതാണ് റോഡിനും വീടുകൾക്കും ഭീഷണിയുയർത്തുന്നതെന്നാരോപിച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു

വൈകീട്ട് മൂന്നിന് ലണ്ടനിലെ നോട്ടിംഗ്ഹാമിലാണ് മത്സരം കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ഇന്ത്യ ജയിച്ചിരുന്നു

ഇന്നലെ കൊച്ചിയിൽ അന്തരിച്ച വാദൃകലാകാരൻ അന്നമനട പരമേശ്വര മാരാരുടെ മൃതദേഹം ഇന്ന് ഉച്ചകഴിഞ്ഞ് തൃശൂർ പാമ്പാടി ഐവർ മഠത്തിൽ സംസ്കരിക്കും ഇന്നലെ രാത്രി കൊടകരയിലെ വസതിയിലെത്തിച്ച മൃതദേഹം രാവിലെ കൊടകര കാവിൽ എൻ എസ് എസ്

തുടർന്ന് ജന്മനാടായ അന്നമനടയിലേക്കു കൊണ്ടുപോകുന്ന മൃതദേഹം അവിടെ പൊതുദർശനത്തിനുവെച്ച ശേഷമായിരിക്കും സംസ്കാരം

ടി നസീർ വധശ്രമ കേസിൽ ആരോപണ വിധേയനായ എം

എ യെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ സതീശൻ പാച്ചേനി ഇന്ന് തലശ്ശേരിയിൽ ഏകദിന ഉപവാസം നടത്തും രാവിലെ ഒമ്പതിന് തലശ്ശേരി പഴയ ബസ്സ്റ്റാന്റ് പരിസരത്താണ് ഉപവാസം

മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും

സുധാകരൻ ഉദ്ഘാടനം ചെയ്യും

ഖാദർ കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിലെ ശുപാർശകൾ കാലതാമസമി ല്ലാതെ നടപ്പാക്കണമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു സമിതി റിപ്പോർട്ടിന്റെ രണ്ടാംഭാഗം വൈകാതെ ലഭിച്ചേക്കുമെന്ന് പരിഷത്ത് ഭാരവാഹികൾ കോഴിക്കോട്ട് വിശ്വാസം പ്രകടിപ്പിച്ചു കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവം ഇന്ന് സമാപിക്കും തൃക്കലശാട്ടത്തോടെയാണ് ഉത്സവ സമാപനം അക്കരെ കൊട്ടിയൂരിലേക്ക് ഇന്ന് പ്രവേശനം അവസാനിക്കും അടുത്തവർഷം വൈശാഖ മഹോത്സവത്തിന് മാത്രമേ ഇനി അക്കരെ കൊട്ടിയൂരിൽ പൂജകൾ നടക്കൂ കർഷകരിൽനിന്ന് നേരിട്ട് റബ്ബർ സംഭരിച്ച് മൂല്യവർധിത ഉൽപന്ന ങ്ങളാക്കി മാറ്റാൻ കോട്ടയം കാഞ്ഞിർപ്പള്ളിയിൽ സിയാൽ മാതൃകയിൽ റബർ കമ്പനി രജിസ്റ്റർ ചെയ്ത് പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി

കിൻഫ്ര യാണ് നോഡൽ ഏജൻസി